അഭിസംബോധന ചെയ്യും

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്ട് ഇന്ന് യു

കോവാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാൻ അനുമതിയായി

വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കില്ല അന്താരാഷ്ട്ര വിമാന സർവ്വീസുകളും ഉണ്ടാവില്ല

എസ് എൽ സി പരീക്ഷാ ഫലം ഇന്ന് ഉച്ചയ്ക്ക് പ്രസിദ്ധീകരിക്കും

രണ്ടാംഘട്ടം അൺലോക്കിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം പുറപ്പെടുവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്

ഇന്ത്യാ ചൈന നിയന്ത്രണ രേഖയിലെ പ്രശ്നങ്ങൾ ചർച്ചയാകുമെന്ന് കരുതുന്നുതായി രാജ്യരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു മറ്റ് മേഖലാ അന്താരാഷ്ട്ര വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്യും

സംഘർഷ മേഖ്ലകളിൽ നിന്നും സൈനികരെ പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രൂപരേഖയായേക്കും

നേരത്തെ രണ്ടു കൂടിക്കാഴ്ചകളും നടന്നത് ചൈനീസ് ഭാഗത്ത് ഉൾപ്പെടുന്ന മോൾദോയിലാണ്

ജൂലൈ മുതൽ രോഗികളിൽ പരീക്ഷിക്കാനാണ് തീരുമാനം വിശദാംശങ്ങളുമായി ദേവിപ്രിയ വോയിസ് ഐ സി എം ആർ ദേശീയ വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുമായി ചേർന്ന് രാജ്യത്താദ്യമായി കോവിഡിനെതിരെയുള്ള വാക്സിൻ കോവാക്സിൻ വികസിപ്പിച്ചതായി ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ബയോടെക്ക് അറിയിച്ചു

രാജ്യത്ത് വാക്സിൻ വികസനവുമായി ബന്ധപ്പെട്ട സരുക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് കോവാക്സിന്റെ പ്രീ ക്ലിനിക്കൽ പഠനങ്ങൾ നടത്തിയതെന്ന് ഭാരത് ബയോടെക്ക് ചെയർപേഴ്സൺ ഡോ

പോളിയോ റേബീസ് റോട്ടാ വൈറസ് ജപ്പാൻ ജൂരം ചിക്കൻഗുനിയ സീക്ക എന്നിവയ്ക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ മാർഗ്ഗങ്ങൾ വികസിപ്പിച്ചെടുത്ത ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ രാജ്യത്തിന്റെ കോവിഡ് പ്രതിരോധത്തിൽ സുപ്രധാനമാകുമെന്ന് കമ്പനി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സൂചിത്ര ഏല്ലാ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐ

സംഘടിപ്പിച്ച ഡിജിറ്റൽ വൃവസായ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം മേഖലാ സഹകരണത്തിന്റെ മികച്ച ദൃഷ്ടാന്തമാണെന്ന് ശ്രീ മുരളീധരൻ ടിറ്ററിൽ കുറിച്ചു

അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉണ്ടാവില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകുന്ന വിമാനങ്ങൾക്ക് പറക്കാം മെട്രോ തീവണ്ടി സർവീസുകളും ഉണ്ടാവില്ല സിനിമാ ശാലകൾ ജിംനേഷ്യങ്ങൾ സ്വിമ്മിങ് പൂളുകൾ എന്റർടെയ്ൻമെന്റ് പാർക്കുകൾ ബാറുകൾ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയവയും തുറക്കില്ല

എസ്

സി പരീക്ഷാഫലം ഇന്നറിയാം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ്ട് വിദ്യാഭ്യാസമന്ത്രി സി

ഡി ലൈവ് എന്നീ മൊബൈൽ ആപ്പുകൾ വഴിയും ഫലം അറിയാം

നേരത്തെ പ്രഖ്യാപിച്ച ഇളവുകൾ തുടരും

കഴിഞ്ഞയാഴ്ച സി

എഫ് ജവാന്റെ വീരമൃത്യുപിനും അഞ്ചു വയസ്സുകാരന്റെ മരണത്തിനും കാരണമായ ആക്രമണം നടത്തിയ ഭീകരരെയാണ് സൈന്യം വധിച്ചത്

സ്വർണ്ണവില കുറഞ്ഞു